പശ്ചിമ ചരക്ക് ഗതാഗത ഇടനാഴിയുടെ ന്യൂ റെവാരി ന്യൂ മദാർ മേഖല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും

പക്ഷിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ കേരളത്തിലും ഹരിയാനയിലും കേന്ദ്രം വിദഗ്ദ സംഘത്തെ അയയ്ക്കും

സിഡ്നിയിൽ തുടക്കമായി മഴ തടസം സൃഷ്ടിക്കുന്നു

ന്യൂ അതേലിയിൽ നിന്ന് ന്യൂ കിഷൻ ഗണ്ഡ് വരെ സർവീസ് നടത്തുന്ന ഒന്നരകിലോമീറ്റർ നീളമുള്ള ഇലക്ട്രിക് ട്രാക്ഷനോട് കൂടിയ ലോകത്തെ ആദ്യ ഡബിൾ സ്റ്റാക്ക് ലോങ്ങ് ഹോൾ കണ്ടെയ്നർ ട്രെയിനും പ്രധാനമന്ത്രി വീഡിയോ കോൺഫെറെൻസിങ്ങിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്യും

ചർച്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ത്യൻ സംഘത്തെ നയിക്കും ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഇമ്മാനുവേൽ ബോൺ ഫ്രഞ്ച് പ്രതിനിധിയായി പങ്കെടുക്കും ഉഭയകക്ഷി ബന്ധം ഉൾപ്പെടെ വിവിധ ആഗോള വിഷയങ്ങൾ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു

ലഡാക്കിന്റെ പത്ത് അംഗ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ അമിത്ഷായെ സന്ദർശിച്ചിരുന്നു

ലഡാക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പ്രാധാന്യവും കണക്കിലെടുത്ത് ലഡാക്കിലെ ഭാഷ സംസ്കാരം പ്രദേശത്തിന്റെ സംരക്ഷണം വികസന പ്രവർത്തനങ്ങളിലെ ജന പങ്കാളിത്തം തൊഴിൽ സംരക്ഷണം ജനസംഖ്യയിലെ മാറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രതിനിധികളും ചർച്ച ചെയ്തു ലഡാക്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ പദവി നൽകിക്കൊണ്ട് ലഡാക്കിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങളോട് നരേന്ദ്ര മോഡി സർക്കാർ പ്രതിജ്ഞാബദ്ധത പാലിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം കണ്ടെത്തുന്നതിന് ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമാിയ്ട്ടു ഇന്നലെ ആഭ്യന്തരമന്ത്രിയെ സന്ദർശിച്ച പ്രതിനിധ്യി സ്റ്റ്ഘത്തിലെ അംഗങ്ങൾ ലഡാക്കിലെ ജനപ്രതിനിധികൾ ലഡ്കിക്ക് സ്വയംഭരണ ഹിൽ ഡെവലപ്മെന്റ് കൌൺസിൽ അർഗ്ഗങ്ങൾ ഇന്ത്യാ സർക്കാരിനെയും ലഡാക്ക് ഭരണകൂടത്തെയും പ്രതിനിധീകരിക്കുന്ന എക്സ് അഫീഷ്യോ അംശങ്ങൾ എന്നിവരടങ്ങുന്നതാണ് സമിതി

വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിനാണ് വീണ്ടും ഡ്രൈ റൺ നടത്തുന്നതെന്ന് ആരോഗൃമന്ത്രാലയം വൃക്തമാക്കി

രണ്ട് വാക്സിനുകളുടെ പ്രയോഗാനുമതി ഡ്രഗ്സ് കൺട്രോളറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്

ഈ വിഷയം കൈകാരൃം ചെയ്യുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുള്ള നടപടികൾക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു

ശത്രുക്കൾക്കെതിരായ പോരാട്ടത്തിൽ സൈനികരുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ നായിക് പറഞ്ഞു

കേരളത്തിള്ളെ ആലപ്പുഴ കോട്ടയം ജില്ലകളിലും ഹരിയാനയിലെ പഞ്ചക്കില് ജില്ലയിലുമാണ് വിദഗ്ദ്ധ സംഘം എത്തുന്നത്

പക്ഷിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടെ ആരോഗൃവകുപ്പിന് മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനും കേന്ദ്ര സഹായവും പൊതുജനാരോഗൃവും ഉറപ്പു വരുത്തുന്നതിനുമാണ് വിദഗ്ദ്ധ സംഘം എത്തുന്നത് കേരളത്തിലെ ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ചത്ത താറാവുകളുടെ സാമ്പിളുകളിൽ നിന്നും പക്ഷിപ്പനി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഇതിനുപുറമെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൂടാതെ പാകം ചെയ്യുന്നതിനായി പച്ച മാംസം കൈകാരൃം ചെയ്ത ശേഷം കൈകൾ സോപ്പുപയോഗിച്ച് വൃത്തിയായി കഴുകണമെന്നും നിർദ്ദേശമുണ്ട്

രോഗവ്യാപനം നിരീക്ഷിക്കാൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്

മുഹമ്മദ് സിറാജിനാണ് വിക്കറ്റ് അരങ്ങേറ്റക്കാരൻ വിൽ പുകോവ്സ്കി മർനസ് ലബുഷാനെ എന്നിവരാണ് ക്രീസിൽ

യൂറോപ്യൻ ആഗോള തലങ്ങളിൽ സുസ്ഥിരവും ശക്തവുമായ നേതൃത്വം നൽകുന്നതിൽ ചാൻസലർ മെർക്കലിന്റെ ദീർഘകാലമായുള്ള പങ്കിനെ നരേന്ദ്ര മോദി അഭിനന്ദിച്ചു

ഇന്തൃയിലെ വാക്സിൻ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ജർമൻ ചാൻസലർ മെർക്കലിനു വിശദീകരിച്ചു

എൻ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നേടിയ ഒരൊറ്റ ശബ്ദം പോലുമില്ലെന്ന് വിദേശ കാര്യ സെക്രട്ടറി ഹർഷ വർദ്ധൻ ശൃംഗ്ല പറഞ്ഞു

സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ അധികരിച്ച് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി സംഘടിപ്പിച്ച തുറന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഹൈദരാബാദിലെ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തമിഴിസൈ സൌന്ദർ രാജൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും